രക്തസാക്ഷികൾക്ക് രാഷ്ട്രത്തിന്റെ പ്രണാമം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

അവകാശങ്ങളും സംരക്ഷിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് സമാപിക്കും

ഘട്ട വോട്ടെടുപ്പിന് പ്രചാരണം ഊർജ്ജിതം

സർവ്വീസുകൾ ആരംഭിച്ചു

ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീരസൈനീകർക്ക് രാഷ്ട്രം ശ്രദ്ധാജ്ഞലി അർപ്പിച്ചു

എല്ലാ വിധത്തിലുള്ള ഭീകരതയെയും അമർച്ച ചെയ്യാനുളള തീരുമാനങ്ങളിൽ ഇന്ത്യ എന്നും ഉറച്ചു നിൽക്കുമെന്ന് സന്ദേശത്തിൽ രാഷ്ട്രപതി പറഞ്ഞു പാർലമെന്റ് മന്ദിരത്തിലെ സ്മാരകത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ നിരവധി നേതാക്കൾ പങ്കെടുത്തു

വെങ്കയ്യനായിഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭൃന്തര മന്ത്രി അമിത് ഷാ എന്നിവർ സ്മാരകത്തിൽ പുഷ്പാർച്ചുന നടത്തി

ഇന്നലെ ഗസറ്റിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ നിയമം നിലവിൽ വന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

ഭരണഘടനയുടെ ആറാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസം മേഘാലയ മിസോറം ത്രിപുര എന്നീ ഗോത്രമേഖലകൾക്ക് ഭേദഗതി ബാധകമല്ല നുഴഞ്ഞുകയറ്റക്കാരെയും അഭയാർത്ഥികളെയും തമ്മിൽ വേർതിരിക്കേണ്ടതുണ്ടെന്നും പൌരത്വ നിയമ ഭേദഗതി വേണമെന്നും ഗവൺമെന്റ് വ്യക്തമാക്കി രാജ്യസഭ ബുധനാഴ്ചയും ലോക സഭ തിങ്കളാഴ്ചയുമാണ് പൌരത്വ ഭേദഗതി ബിൽ പാസാക്കിയത്

ജാർഖണ്ഡിലെ ധൻബാദിൽ റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്

തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ചില വിഭാഗങ്ങൾ സ്ഥിതിഗതികൾ വഷളാക്കാൻ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി അസം കരാറിലെ ആറാം വകുപ്പ് നടപ്പിലാക്കുമെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കടൽകൊള്ള പ്രതിരോധിക്കുന്നതിനും കൊള്ളക്കാർക്ക് ശിക്ഷ വ്യവസ്ഥ ചെയ്യാനുമുള്ള ബിൽ വിദേശകാര്യ മന്ത്രി എസ് ജയ്ശങ്കർ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും

നിരവധി സുപ്രധാന ബില്ലുകൾ ശീതകാല സമ്മേളന കാലയളവിൽ പാർലമെന്റ് പാസാക്കി ഭരണഘടനാ ഭേദഗതി ബിൽ ചിട്ടിഫണ്ട് ബിൽ പൌരത്വ നിയമ ഭേദഗതി ബിൽ എന്നിവ അവയിൽ ഉൾപ്പെടും

ബംഗ്ലാദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ചെയർമാൻ എഹ്സാൻ ഇലാഹി ഉദ്ഘാടനം ചെയ്തു

ബംഗ്ലാദേശുകാരുടെ പ്രധാന വിനോദസഞ്ചാര ലക്ഷ്യ സ്ഥാനങ്ങളാണ് ഗാംഗ്ടോക്കും ഡാർജിലിംഗും

മ്മേഖലയുടെ സുരക്ഷയും വികസനവുമാണ് പ്രധാനമായും ചർച്ചു ചെയ്യുന്നത്

ന്യൂഡൽഹി പ്രവാസി ഭാരതീയ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം സമ്മേളനം ആരംഭിക്കും

ഇന്ന് നടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര സംവാദത്തിൽ ഇന്തോ പസഫിക് ഭൂമിശാസ്ത്രത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പൂനർ വിചിന്തനം എന്നതാണ് മുഖ്യ ആശയം ഇന്തോ പസഫിക് പങ്കാളിത്ത പുരോഗതി എന്നതാണ് ഡൽഹി സംവാദത്തിന്റെ പ്രമേയം

ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ വിവിധ രംഗത്തെ പ്രഗത്ഭർ രണ്ട് സംവാദങ്ങളിലും പങ്കെടുക്കും സംവാദങ്ങൾക്ക് മുമ്പായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസം ശാസ്ത്രം സാങ്കേതികവിദ്യ എന്നീ രംഗങ്ങളിലെ വിദഗ്ധ സംഘത്തിന്റെ യോഗം നടക്കും ഇന്തോ പസഫിക് മേഖലയിൽ സുതാര്യമായ സമീപനം എന്നതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്

മർസൂദി രു ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി ആറാമത് ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷന്റെ യോഗത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രി ഡോ

പതിനൊന്നാമത് ഡൽഹി ചർച്ചയിലും ഇന്ത്യൻ മഹാസമുദ്ര ചർച്ചയിലും മർസൂദി പങ്കെടുക്കും

ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങും വിദേശകാര്യ മന്ത്രി എസ്

ഇരുരാഷ്ട്രങ്ങളുടേയും വിദേശനയം പ്രതിരോധം സുരക്ഷാ വിഷയങ്ങൾ എന്നിവ സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്നുള്ള സംഘം യു എസ് നേതൃത്വവുമായിട്ട് സമഗ്ര ചർച്ച നടത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയ വക്താവ് രവീഷ്ടപ്പ് കുമാർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

ഇത് സംബന്ധിച്ച ഉത്തരവിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവച്ചു മണിപ്പൂരിനെ ഇന്നർ ലൈൻ പെർമിറ്റിന്റെ കീഴിൽ കൊണ്ട്ടുവരുമെന്ന് രണ്ട് ദിവസം മുമ്പ് കേന്ദ്രമന്ത്രി അമിത്ഷാ ൃ ്വൃക്ക്മാക്കിയിരുന്നു

ഇക്കാര്യത്തിൽ ബിജെപി ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളോട് വിവേചനം കാണിക്കുന്നുവെന്ന ആരോപണം ധനമന്ത്രി തള്ളി

ബന്ധം ശക്തമാക്കാൻ ഒരുമിച്ചു പ്രവർത്തിക്കാമെന്ന് ശ്രീ

ഇന്നലെ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ്ട് ബോറിസ് ജോൺസന്റെ കൺസർവേറ്റീവ് പാർട്ടി വ്യക്തമായ ഭൂരിപ്ടിക്ഷം നേടിയിരുന്നു

മേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകുന്നേരം നിശാഗന്ധിയിൽ ഉദ്ഘാടനം ചെയ്യും

വാഴൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എ സി മൊയ്തീൻ പ്രഖ്യാപനം നടത്തി

രാജു ഉൽഘാടനം ചെയ്തു